പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ചർച്ച ദേശീയ താത്പര്യമാണ് പരമ പ്രധാനമെന്ന് നടത്തി

പാർലമെന്റ് സുഗമമായി നടത്താൻ കോൺഗ്രസ് സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി

പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് ജപ്പാനിലേക്ക് തിരിക്കും

ന്യൂസിലൻഡ് ബാറ്റിംഗ് തുടരുന്നു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഇന്ത്യ അമേരിക്ക നയതന്ത്രബന്ധം കൂടുതൽ ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയതാണ് പോംപിയോ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോംപിയോ ഇന്ന് രാവിലെ കൂടിക്കാഴ്ച നടത്തി

തുടർന്ന് ദേശീയ ർസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ജോവലുമായി പോംപിയോ ച്ചർച്ച് നടത്തി വ്യവസായം ഊർജ്ജം എന്നീ മേഖലകളിലാണ് ഇന്ന് ചർച്ച നടന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആഴ്മുള്ള ബന്ധമാണുള്ളതെന്ന് ജെയ് ശങ്കർ പറഞ്ഞു

തീവ്രവാദത്തെ ചെറുക്കാൻ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായി മൈക്ക് പോംപിയോ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റാണ് ആഗ്രഹിച്ചതെന്നും അത് സഫലമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇത്തരം പരാമർശങ്ങൾ ദൌർഭാഗൃകരമാണെന്നും ജനങ്ങളുടെ വിധിയെ ചോദ്യം ചെയ്യരുതെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി കോൺഗ്രസിന്റെ പരാജയം രാജ്യത്തിനു ായ വലിയ നഷ്ടമെന്ന് എങ്ങനെ പറയാനാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ബി ജെ പിയുടെ വിജയത്തിന് കാരണം മാധ്യമങ്ങളാണെന്ന ചിലരുടെ പ്രസ്താവനകൾ വസ്തുതാവിരുദ്ധമാണെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് നിരന്തരം സഭയിൽ പരാതികൾ ഉ ായിരുന്നപ്പോഴും വോട്ടിംഗ് ശതമാനത്തിൽ വൻ വർദ്ധന ഉ ായത് നല്ലൊരു സൂചനയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രത്തിൽ ബി ജെ

എ

രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാകും സൈനിക സ്കൂളുകൾ സ്ഥാപിക്കുക സംസ്ഥാന ഗവൺമെന്റുകളുമായി കരാർ ഒപ്പിട്ടതായും അദ്ദേഹം സഭയെ അറിയിച്ചു ഇതിനായി സംസ്ഥാന ഗവൺമെൻുകൾ സ്ഥലവും നിർമ്മാണ തുകയും സൌജന്യമായി നൽകും

ശ്രീ നായിഡുവിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച്ചു കേന്ദ്ര ബജറ്റിലേക്കുള്ള തന്റെ നിർദ്ദേശങ്ങളും ശ്രീ നായിഡു അറിയിച്ചു

പി എസ് ഓഫീസർ സാമന്ത് ഗോയലിനെയും ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയായി അസം കേഡർ ഐ പി എസ് ഓഫീസർ അരവിന്ദ് കുമാറിനെയും നിയമിച്ചു

ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേ ി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിലേക്ക് യാത്ര തിരിക്കും കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഭക്ഷ്യ സുരക്ഷ ഊർജ്ജ സുരക്ഷ ആഗോള ധനകാര്യ സുസ്ഥിരത ആഗോള ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡിജിറ്റൽ പണമിടപാട് വേഗത്തിലാക്കാനുള്ള പുത്തൻ സംരംഭങ്ങളും നിർമ്മിത ബുദ്ധി എന്നിവയുമാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ മുൻ കേന്ദ്രമന്ത്രി സ്റ്റുർപ്പ് പ്രഭു ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നതിനായി ഇന്നല്ലെ ഒസാക്കയിലെത്തി

ഇന്നലെ നടിന്നു പ്രാഥമിക ചർച്ചകളിൽ ആഗോള വിഷയങ്ങൾക്ക് ഉയർന്ന പരിഗണന ലഭിച്ചതായി സുരേഷ് പ്രഭു ട്വീറ്റ് ചെയ്തു ഇന്ത്യുടെ മുൻഗണനകളും യോഗത്തിൽ വിലയിരുത്തിയതായി സുരേഷ് പ്രഭു പറഞ്ഞു ബ്രിക്സ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അനൌപചാരിക കൂടിക്കാഴ്ചകളും ഉഭയകക്ഷി ചർച്ചകളും ഉച്ചകോടിയുടെ ഭാഗമായി ഉ ാകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്തമാസം ഒന്നിന് ആരംഭിക്കുന്ന ജലശക്തി അഭിയ്യാന്റെ കീഴിലായിരിക്കും ഇവരുടെ നിയമനം

കേന്ദ്ര ഗവൺമെന്റിലെ ഡ്രിയ്റക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറിതല ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ എഞ്ചിനിയർമാർ എന്നിവരോടൊപ്പമായിരിക്കും ഇവരുടെ പ്രവർത്തനം

ര ലക്ഷം ഗ്രാമപഞ്ചായത്തുകളെയും ഭാരത് നെറ്റ് പദ്ധതിയുടെ ഭാഗമായി ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്

കൃാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടെതാണ് തീരുമാനം

ടൂർണമെന്റിൽ നിലനിൽക്കാൻ പാകിസ്ഥാന് ഇന്നത്തെ മത്സരം വിജയിച്ചേ മതിയാകൂ അതേസമയം ഇതുവരെ തോൽവി അറിയാതെ മുന്നേറുന്ന കിവീസിന് ഈ മത്സരം ജയിച്ചാൽ സെമി ഉറപ്പാക്കാം

മോദിയുടെ ആദ്യത്ത് മൻ കി ബാത് പ്രക്ഷേപണ പരിപാടിയാണ് ഇത്

ഈ പരിപാടി എല്ലാവരും കേൾക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ അഭ്യർത്ഥിച്ചു

ഇതുവരെയായി ചൈനയിലെ ര ് കമ്പനികൾ ഉൾപ്പെടെ ആറ് കമ്പനികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടു ന്നും മന്ത്രി പറഞ്ഞു

കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാപ്രശ്നങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ ശ്രീ

ജോസഫ് ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം